പ്രചാരണം ഊർജ്ജിതം

സർവ്വീസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പീയുഷ് ഗോയൽ മുൻകൂട്ടി ബുക്കുചെയ്യാതെ ഇവയിൽ യാത്ര ചെയ്യാം

വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

ബിംസ്ടെക് രാജ്യങ്ങൾ തമ്മിൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള പദ്ധതിക്ക് സംഘടന രൂപം നൽകി

തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഭരണകക്ഷിയായ എൽ

എഫിനെയും പ്രതിപക്ഷമായ യു

എഫിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തുവെന്നും എൻ

എയുടെ വികസന അജണ്ടയാണ് ജനങ്ങൾക്ക് ആവശൃമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സമഗ്ര വികസനത്തിനായുള്ള എൻ ഡി എയുടെ വികസന കാഴ്ചപ്പാട് എടുത്തു പറഞ്ഞ പ്രശ്യാനമന്ത്രി കേരളത്തിലെ പ്രൊഫഷണൽ സമൂഹം ഇന്ന് പ്രിശ്ചാസം അർപ്പിക്കുന്നത് എൻ ഡി

യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് കേന്ദ്രാവിഷ്കൃതമായ വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്ണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തരംതാഴ്ത്തി കണ്ട എൽ ഡി എഫ് സർക്കാർ വിശ്വാസി സമൂഹത്തെ ലാത്തിക്കൊണ്ടാണ് നേരിട്ടതെന്നും ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു

ജെ

അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ

എ സ്ഥാനാർത്ഥിയാകുന്ന പത്തനംതിട്ടയിലെ കോന്നിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ കേന്ദ്രമന്ത്രി വി

പ്രധാനമന്ത്രി അൽപസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും

ദേശീയ നേതാക്കളുടെ സാന്നിധൃവും ശ്രദ്ധേയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ നേമത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ് അമിത് ഷാ കേന്ദ്ര മന്ത്രിമാരായ നിർമ്മല സീതാരാമൻ സ്മൃതി ഇറാനി പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവർ എൻ ഡി എ യുടെ പ്രചാരണാർത്ഥം നാളെ കേരളത്തിലെത്തും

എം നേതാക്കളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി

നേതാവ് കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും സജീവമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്

എം

മധുരൈയിൽ തെരഞ്ഞെട്ടുപ്പ് പ്രചാരണ യോഗത്തിൽ സംബന്ധിക്കെ ജല്ലിക്കെട്ട് ദ്ദ്വേന്ദ്രകുല വെള്ളാളരുടെ വർഗീകരണം എന്നീ വിഷയങ്ങളിൽ ഡ്രീ

സംസ്ഥാനത്തെ എ ഐ

എം കെ സർക്കാരിന്റെയും കേന്ദ്രസർക്കാരിന്റെയും ഭരണനേട്ടങ്ങൾ ശ്രീ

അതേസമയം അരുവകുറുച്ചിയിൽ നട്ടുന്ന ഉതർഞ്ഞെടുപ്പ് യോഗത്തിൽ ഡി എം

സ്റ്റാലിന്റെ മകളുടെ വസതിയിലും ചില ഡി

കെ സ്ഥാനാർത്ഥികളും വീടുകളിലും ഓഫീസുകളിലും ഇന്ന് ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു പുതുച്ചേരിയിലും പ്രചാരണം ഊർജ്ജിതമായി നടക്കുന്നു

കുച്ച്ബെഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിക്കെ ബി ജെ പി അധികാരത്തിലെത്തിയാൽ വൻ വികസനം സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു

ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായ ്ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയ സാഹചര്യത്തിലാണ് വീണ്ടും വോട്ടെടുപ്പിന് നിർദ്ദേൾം നൽകിയത്

നിരവധി മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആമിന നജുമ

ലോകത്തെതന്നെ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമാണ് ഇന്ത്യയിലേത് ആരോഗ്യപ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കുമാണ് ആദ്യം പ്രതിരോധ കുത്തിവയ്പ് നൽകിയത്

അർഹരായ എല്ലാവരും കോ വിൻ പോർട്ടലിലോ ആരോഗൃസേതു ആപ്പിലോ രജിസ്റ്റർ ചെയ്ത് എത്രയും വേഗം പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രത്തിലെത്തി ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ ഹാജരാക്കി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിമുതൽ തത്സമയ രജിസ്ട്രേഷൻ നടത്താം കോവിൻ വഴി രജിസ്ട്രേഷൻ നടത്തിയാൽ പിന്നീട് വീണ്ടും ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല

മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യാം സുരക്ഷിതമായി ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യാമെന്ന് റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു

അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളിൽ തുടർച്ചയായ വർധനയാണ് രേഖപ്പെടുത്തുന്നത്

ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക തായാലൻഡ് മ്യാൻമാർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബിംസ്റ്റെക് കൂട്ടായ്മ അടുത്ത സമ്മേളനത്തിൽ ഈ പദ്ധതി ചർച്ച ചെയ്യും

ഐക്യരാഷ്ട്രസഭയുടെ ഇന്ന് ആഹ്വാനപ്രകാരമാണ് എല്ലാവർഷവും ഏപ്രിൽ രണ്ടിന്അന്താരാഷ്ട്ര ഓട്ടിസം ദിനമായി ആചരിച്ചുവരുന്നത്

ഓട്ടിസം സ്പെക്ട്രം രോഗങ്ങളെക്കുറിച്ചും അവ ബാധിച്ചവരെക്കുറിച്ചും ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുകയെന്നതാണ് ഓട്ടിസം ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉൾക്കൊള്ളിക്കൽ മഹാമാരിക്ക് ശേഷമുള്ള ലോകത്തെ വെല്ലുവിളികളും അവസരങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വരുമാനം സ്വത്തുവിഹിതം ആരോഗൃസംരക്ഷണം നിയമപരിരക്ഷ രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ ഓട്ടിസംബാധിതർ അഭിമൂഖീകരിച്ചുകൊണ്ടിരുന്ന അസമത്വങ്ങൾ മഹാമാരിക്കാലത്ത് തീവ്രമായതായാണ് ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണം ലിംഗ സാമൂഹിക സാമ്പത്തികഭേദമന്യേ ചെറുപ്പത്തിൽ തന്നെ പ്രകടമാകുന്ന ആജീവനാന്ത നാഡീവ്യൂഹ വ്യതിയാനമാണ് ഓട്ടിസം എന്ന അവസ്ഥ